മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് നാടകീയ അന്തൃം മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിയായി എൻ

രക്ഷാസമിതി ഐകകണ്ഠേന പാസാക്കി

ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുന്നത് ജനങ്ങളുടെ വ്യക്തമായ പിന്തുണ ബി ജെ പി ശിവസേന സഖ്യത്തിന് ലഭിച്ചിരുന്നെങ്കിലും ശിവസേന പിന്നീട് സഖ്യ ചർച്ചകൾക്കായി മറ്റു പാർട്ടികളെ സമീപിച്ചതിനാലാണ് പ്രസിഡന്റ് ഭരണം വേണ്ടിവന്നതെന്ന് ശ്രീ ഫട്നാവിസ് പറഞ്ഞു മഹാരാഷ്ട്രയിൽ സ്ഥിരതയുള്ള ഗവൺമെന്റാണ് വേണ്ടതെന്നും അദ്ദേഹം വുക്തമാക്കി ഗവൺമെന്റ് രൂപീകരണം വൈകിയത് മഹാരാഷ്ട്രയിലെ കർഷകർ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടെന്നും അടക്കമുള്ള ജനതയെ സാഹചര്യത്തിലാണ് ബിജെപിയുമായി ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നും ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ അജിത് പവാറിനെ അദ്ദേഹം ആശംസകൾ അറിയിച്ചു മഹാരാഷ്ട്രയുടെ ശോഭനമായ ഭാവിയ്ക്കായി പുതിയ ഗവൺമെന്റിന് പ്രവർത്തിക്കാനാകുമെന്ന് അദ്ദേഹം ട്വീറ്ററിൽ കുറിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും നേതാക്കൾക്ക് ആശംസകൾ നേർന്നു എന്നാൽ ബിജെപി യെ പിന്തുണയ്ക്കാനും ഗവൺമെന്റിന്റെ ഭാഗമാകാനുമുള്ള അജിത്പവാറിന്റെ തീരുമാനം വ്യക്തിപരമാണെന്നും പാർട്ടി തീരുമാനമല്ലെന്നും എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ വ്യക്തമാക്കി അജിത് പവാറിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് അദ്ദേം ട്വീറ്ററിൽ കുറിച്ചു അധികാരത്തിന് വേണ്ടി അജിത് പവാർ ചതിച്ചുവെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റൌട്ട് ആരോപിച്ചു എൻസിപി നേതാവ് ശരത് പവാർ ഇപ്പോഴും തങ്ങളോടൊപ്പമാണെന്നും അജിത് പവാറിന്റെ തീരുമാനത്തിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്നും ശ്രീ സഞജയ് റൌട്ട് വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി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

ജപ്പാനിലെ നഗോയയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ കിഴക്കൻ ഏഷ്യൻ നയംശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീജയശങ്കർ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തൊഷിമിത് സുമൊട്ടേഗിയുമായും ചർച്ച നടത്തി

മലിനീകരണത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും സംബന്ധിച്ച് നടന്ന ചർച്ചിയ്ടിൽ ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

അന്തരീക്ഷ മല്ലിനീകരണത്തിനെതിരെ എല്ലാദിവസവും നാമോരോരുത്തരും ഉണ്ടർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ശുദ്ധവായുവിന്റെ ലഭൃത ഉറപ്പാക്കുന്നതിനായിഓരോ ഭാരതീയനും കുറഞ്ഞത് ഏഴുവൃക്ഷത്തൈയെങ്കിലും നടണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു

പലാമു ധൻബാദ് ജില്ലകളിൽ നിന്നാണ് പണം പിടിച്ചെടുത്ത്

ജമ്മുകാശ്മീർ ധനകാര്യ കമ്മീഷണർ അട്ടൽ ദുളേളാ ജമ്മുകാശ്മീരിൽ വ്യക്തമാക്കിയതാണ് ഇക്കാരൃം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ജൻ ഔഷധി അമൃത് സ്റ്റോറുകൾ എന്നിവയുടെ പ്രവർത്തനത്തെ അദ്ദേഹം വിലയിരുത്തി

മന്ത്രിമാരായ ഇ

ഇത്തരം സംഭവം ് കേരളത്തിലെ സ്കൂളുകളിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും നിർദേശം നൽകിയിട്ടുന്നെും അദ്ദേഹം പറഞ്ഞു മരിച്ച ഷഹ്ലയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നാല് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സംഘം ഇന്നലെ വിദർഭ മേഖലയിലാണ് എത്തിയത്

ഉടമ്പടി പ്രാബലൃത്തിൽ കൊണ്ടു വരാൻ സമിതി എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു

ഉത്തരകൊറിയ ഈജിപ്ത് ദക്ഷിണസുഡാൻ എന്നീ രാജ്യങ്ങൾ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നാൽ ഇസ്രായേൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും നിയമം നടപ്പാക്കിയില്ല

പ്രാദേശിക ജലോത്സവങ്ങൾ ഏകോപിപ്പിച്ച് ആദ്യമായി സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട്ലീഗ് ഫൈനൽ കൂടിയായതിനാൽ വാശിയേക്കിയ്ക് മത്സരം ലോക ശ്രദ്ധ ആകർഷിക്കും

മൂന്നു മത്സരങ്ങളുടെ പരമ്പരിലെ രണ്ടാം മത്സരം അടുത്തമാസം എട്ടിന് തിരുവനന്തപുരത്ത് വച്ചാണ് നടക്കുന്നത്